മാത്രം ശേഷിക്കെ കേരളത്തിലും തമിഴ്നാട്ടിലും ദേശീയ നേതാക്കളുടെ നീണ്ട്നിര

പ്രശസ്ത ചലച്ചീത്ത് താരം രജനികാന്തിന്

ക്രൈസ്തവർ ഇന്ന് പെസഹാ ആചരിക്കുന്നു

മുഖ്യമന്ത്രി മമത ബാനർജിയും മുൻ തൃണമൂൽ നേതാവും ബിജെപി സ്ഥാന്റാർത്ഥിയുമായ സുവേന്ദു അധികാരിയും സി

ഐ എമ്മീറ്റ്റ് മീനാക്ഷി മുഖർജിയും ഏറ്റുമുട്ടുന്ന നന്ദിഗ്രാമിലെ പോളിറ്റ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് ദൃശ്യമായത് തൃണമൂൽ കോൺഗ്രസും ബിജെപിയും എല്ലാ മുണ്ഡലങ്ങളിലും സ്ഥാനാർഥികളെ നിർത്തിയിട്ടുണ്ട്

എ

അസമിന് ശാന്തിയുടെ ദിനങ്ങളാണ് എൻ

അസമിന്റെ വികസനവുമായി കോൺഗ്രസിന് യാതൊരു ബന്ധവുമില്ലെന്നും ശ്രീ

സംസ്ഥാനത്തിന്റെ വികസനത്തിനും ശാന്തിക്കും സുരക്ഷയ്ക്കും അസം ജനത ് എൻ

യിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

മുർഷിദാബാദ് ജില്ലയിൽ നാല് യോഗങ്ങളിൽ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി പങ്കെടുക്കും

എസ്

വോയിസ് ഒറ്റഘട്ടമായാണ് തമിഴ്നാട്ടിലും നിയമസഭ തെരഞ്ഞെടുപ്പ് ന്ടക്കുന്നത്

ഐ

എം

പ്രമുഖ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി നിരവധി സിനിമാ താരങ്ങളാണ് മത്സര രംഗത്തുള്ളത് കമൽഹാസൻ വിജയ് കാന്ത് ഖുശ്ബു തുടങ്ങിയ വലിയ താരനിര തന്നെ മത്സര രംഗത്ത് അണിനിരക്കുന്നുണ്ട് അവസാനിക്കുന്ന തമിഴ്നാട്ടിൽ വൻതാരനിരയെ ഇറക്കിയാണ് ഡി

ഐ

എം കെയും പ്രചാരണം നടത്തുന്ന ത്

വോട്ടർമാരെ പണവും സമ്മാനവും കൊടുത്ത് സ്വാധീനിക്കുകയാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധനകളും ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കും

യു പി മുഖ്യമന്ത്രി യോക്കി ആദിത്യനാഥ് ബി ജെ

ഡി

ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വികസന വിരോധികൾ സംസ്ഥാനതല ഐക്യം ഉണ്ടാക്കിയിരിക്കുന്നു പകരം ഓരോ മണിക്കൂറിലും പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും കണ്ണൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ചലച്ചിത്ര മേഖലക്ക് നടനായും നിർമ്മാതാവായും തിരക്കഥാകൃത്തായുമുള്ള ശ്രീ

ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ സംഭാവനകൾക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ

വളരെ വൃതൃസ്തമായ അഭിനയ പാടവം കാഴ്ച വയ്ക്കുന്ന രജനി സ്നേഹ സമ്പന്നവും ലളിതവുമായ വൃക്തിത്വത്തിന്റെ ഉടമയാണെന്നും പ്രധാന്മൂന്തി ടിറ്ററിൽ കുറിച്ചു

ഈ വിഭാഗത്തിൽപെട്ടവർക്ക് ഓൺലൈൻ മുഖേനയും ആശുപത്രിയിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്തും വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്

ഹോട്ടൽ ബാർ പബ് ജിം എന്നിവ ഈ സമയം പ്രവർത്തിക്കുന്നതിന് വിലക്കുണ്ട്

എന്നാൽ മാർച്ചിലെ പലിശ നിരക്ക് തുടരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ട്വിറ്ററിൽ അറിയിച്ചു

സ്വർണ വിലയിൽ വർദ്ധന

ബി

സഞ്ചാരികളിൽ ഗുരുതരമായ പരിക്കുകളോ അത്യാഹിതമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടു ദിവസമായി ഇവിടെ അതിശൈത്യവും ദ് മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുകയാണ്

പൂരുഷ ഡബിൾസിന്റെ സൈമിഫൈനലിൽ രാജീവ് റാം ജോ സാലിസ്ബറി സഖ്യത്തിനം വിജയം നേടാനായി